ആദ്യ ഫലസൂചനകൾ എട്ടരയോടെ

ത കോഴിക്കോട്ടെ മേഖലാ ശാസ്ത്ര കേന്ദ്രവും ഇരിങ്ങൽ സർഗ്ഗാലയ ക്രാഫ്റ്റ് വില്ലേജും ഇന്ന് തുറക്കും

എൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ കിരീട പോരാട്ടം

വാർത്തകൾ വിശദമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ എട്ടിനാരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ ഫല സൂചനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അര മണിക്കൂറിനകം ലഭ്യമായി തുടങ്ങും

പൊലീസും കേന്ദ്രസേനയും സുരക്ഷാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ത്രിതല സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും വോട്ടെണ്ണലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

ബീഹാറിലെ വാല്മീകി നഗർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും

ഒമ്പത് മണ്ഡലങ്ങൾ ജയിക്കാനായാൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഗവൺമെന്റിന് ഭരണത്തിൽ തുടരാനാകും

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം

ദ്ദേ കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച കോഴിക്കോട്ടെ മേഖലാ ശാസ്ത്ര കേന്ദ്രവും നക്ഷത്ര ബംഗ്ലാവും ഇന്നുമുതൽ സന്ദർശകർക്ക് തുറന്നുകൊടുക്കും ആദ്യഘട്ടത്തിൽ സയൻസ് പാർക്ക് ശാസ്ത്ര ഗാലറി എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും പ്രവേശനം

രമേ കോഴിക്കോട് ഇരിങ്ങൽ സർഗ്ഗാലയ ക്രാഫ്റ്റ് വില്ലേജും ഇന്ന് തുറക്കും

ആദ്യ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ അധ്യക്ഷനായിരിക്കും

വൈകിട്ട് ഏഴരയ്ക്ക് ദുബായിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് മത്സരം

ഡൽഹി ക്യാപിറ്റൽസ് ആദ്യമായാണ് ഫൈനൽ കളിക്കുന്നത്

രുഭ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഏതാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം വന്നതിനെത്തുടർന്നാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയത് നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾക്ക് ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കാവുന്നതാണ്

കരട് വോട്ടർപട്ടിക നാഷണൽ വോട്ടേഴ്സ് സർവ്വീസ് പോർട്ടലിൽ പരിശോധിക്കാവുന്നതാണ് രമേ പാല കോതമംഗലം മലപ്പുറം മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ ഏതാനും ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണ നിയോജക മണ്ഡലങ്ങളും വാർഡുകളും നിർണ്ണയിക്കാൻ പുനർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാളെ നറുക്കെടുത്ത് സംവരണ വാർഡുകളും മണ്ഡലങ്ങളും നിശ്ചയിക്കണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പുനർ വിജ്ഞാപനം

തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകും കേരള കോൺഗ്രസ് ജോസ്

മാണിയും സ്റ്റീഫൻ ജോർജ്ജും യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന

എൽ

ഫാഷൻ ഗോൾഡ് തട്ടിപ്പിനെ ന്യായീകരിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്നും അവർക്ക് പിന്നാലെ കോൺഗ്രസും അഴിമതിയെ തുണയ്ക്കാൻ മുന്നോട്ട് വന്നതായും വിജയരാഘവൻ കുറ്റപ്പെടുത്തി കമറുദ്ദീന് പിന്നാലെ കെ എം ഷാജിയും ഇബ്രാഹിംകുഞ്ഞും ജയിലിൽ പോകുന്നതാണ് ലീഗിനെ ആശങ്കയിലാക്കുന്നതെന്ന് കൺവീനർ പറഞ്ഞു

നായരെ ആക്രമിച്ച കേസിൽ സിനിമാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് ഉണ്ടായേക്കും ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് രുര കോഴിക്കോട് ഉണ്ണികുളത്ത് പീഡനത്തിന് ഇരയായ ആറ് വയസ്സുകാരിയുടെ വീട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു ബന്ധുവീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ സഹോദരങ്ങളെ ആവശ്യമെങ്കിൽ ചിൽഡ്രൻസ് കെയർ ഹോമിലേക്ക് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി രുഭ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം

ഇന്നലെ കമറുദ്ദീനെ രണ്ടുദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു

ഇയാളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് നൽകിയ പരാതിയിലാണ് അന്വേഷണം രുഭ നെടുങ്കണ്ടം രാജ്കുമാർ ഉരുട്ടിക്കൊലക്കേസിൽ സി ബി

ഇയാൾ നടത്തിയിരുന്ന ഹരിത ഫിനാൻസിലെ തട്ടിപ്പിനെപ്പറ്റി പണം നിക്ഷേപിച്ചിരുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ നിക്ഷേപകരെ ചോദ്യം ചെയ്തു പൊലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തെത്തുടർന്ന് പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലിരിക്കെയായിരുന്നു രാജ്കുമാറിന്റെ മരണം രും വരവിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ച കേസിൽ കെ

ഷാജി എം

എ ഇന്ന് കോഴിക്കോട്ട് എൻഫോഴ്സ്മെന്റ് വകുപ്പിന്റെ സബ്സോൺ ഓഫീസിൽ ഹാജരാകും ഇന്നലെ ഷാജിയുടെ ഭാര്യയുടെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു